സമ്പൂർണ്ണ സ്ഥാനാർഥി പട്ടിക നാളെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്ന് സൂചന

സ്ഥാനാർഥി പട്ടിക പ്രഖ്യാപിച്ചു തൊടുപുഴയിൽ പി ജെ ജോസഫും കടുത്തുരൂത്തിയിൽ മോൻസ് ജോസഫും

തുറക്കും

എസ്

മുംബൈ എഫ് സിയും എ

കെ മോഹൻ ബഗാനും ഇന്നിറങ്ങും

ജില്ല മണ്ഡല തലങ്ങളിൽ നിയോഗിച്ച നിരീക്ഷകർക്ക് പുറമെയാണ് മൂന്നുപേരെ കൂടി നിയോഗിച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ അറിയിച്ചു

തർക്കം നിലനിന്ന ഏറ്റുമാനൂരിൽ പ്രിൻസ് ലൂക്കോസും ചങ്ങനാശ്ശേരിയിൽ വി ജെില്ലാലിയും മത്സരിക്കും

രമേശ് ചെന്നിത്തല ഹരിപ്പാടും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും തന്നെ മത്സരിക്കുമെന്ന് അറിയിച്ചു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമോ കാലതാമസമോ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഉമ്മൻ ചാണ്ടി പുതുപ്പള്ളിയിൽ താൻ മത്സരിക്കുന്നതിന് കേന്ദ്ര നേതൃത്വം അനുമതി നൽകിക്കഴിഞ്ഞെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നിയോജക മണ്ഡലം വിട്ടുപോകില്ല നേമത്ത് മത്സരിക്കാൻ തന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു

മുരളീധരൻ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ എന്തു തീരുമാനവും അനുസരിക്കുമെന്ന് മുതിർന്ന നേതാവും വടകര എം

ജെ പി പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശ്രേഷ്ട് ഇന്നു രാത്രിയോ നാളെയോ ബിജെപി സ്ഥാനാർഥിപ്പിട്ടിക പുറത്തു വിടുമെന്ന് സൂചന

എമ്മിന്റെയും ്കോൺഗ്രസിന്റെയും നേതാക്കൾക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധൃക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ജില്ലകളിലൂടെ

സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള അവസാനഘട്ട പണിപ്പുരയിൽ ആണ് മൂന്ന് മുന്നണികളും തൃശൂർ ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്

ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊല്ലത്ത് ചേരും

ഐ മൽസരിക്കുന്ന ബാക്കി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം

കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് നാമനിർദേശ പത്രികകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ റിട്ടേണിങ് ഓഫിസർമാരുടെ ഓഫിസുകളിൽ നടക്കുന്നത്

അതിനിടെ മുഖൃമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ ഉൌർജ്ജിതമായി തുടരുകയാണ്

സി സി സെക്രട്ടറി വിജയൻ തോമസ് ബിജെപിയിൽ ചേർന്നു ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിങ്ങ് വിജയൻ തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു

രണ്ട് ലക്ഷത്തി രണ്ടായിരത്തിലധികം പേരാണ് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്

ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്

ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ള ജില്ല എറണാകുളമാണ്

ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ആശ്വാസ കണക്കുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് ജാഗ്രത കൈവെടിയരുതെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേസുകൾക്കായി ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്ന ജഡ്ജിയാണ് ഇന്ദു മൽഹോത്രയെന്ന് ചീഫ് ജസ്റ്റിസ് എസ്

സുപ്രീംകോടതി കണ്ട മികച്ച ജഡ്ജിമാരിലൊരാളാണ് ഇന്ദു മൽഹോത്രയെന്ന് അറ്റോർണി ജനറൽ കെ

ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച വിധിയിൽ പ്രതികൂല നിലപാട് സ്വീകരിച്ചതിലൂടെ ഇന്ദു മൽഹോത്ര ശ്രദ്ധ നേടിയിരുന്നു

സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്

മഞ്ഞളിന്റെ കൃഷി കുറഞ്ഞെങ്കിലും വിലത്തകർച്ച തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

ടി

കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻമാരായിരുന്ന എ ടി കെ മോഹൻ ബഗാനുമായി ലയിച്ചതിനുശേഷം ഇറങ്ങുന്ന ആദ്യ സീസണാണിത് ജലക്ഷാമം വേനലിലെ കുടിവെള്ള ക്ഷാമം ഉൾപ്പെട്ടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശുദ്ധജല വിതരണ്ട് കാര്യക്ഷമമാക്കാനും വാട്ടർ അതോറിറ്റി കേന്ദ്ര ഓഫീസിൽ പ്ലർത്തി പരിഹാര സെൽ നിലവിൽ വന്നു